ഓറഞ്ച് മേഖലകളിൽ ഇളവുകൾ പൊതുഗതാഗതം അനുവദിക്കില്ല

കേരളത്തിൽ നിന്നും ആദ്യ ട്രെയിൻ ഇന്നലെ രാത്രി ്ആലു്വയിൽ നിന്നും പുറപ്പെട്ടു

വിളിച്ചു ചേർത്ത ഉന്നതതലയോഗത്തിൽ തീരുമാനം പൊതു സ്വകാരൃ പങ്കാളിത്തതോടെ രാജ്യത്ത് മൂന്ന് വിമാനത്താവളങ്ങൾ കൂടി സ്ഥാപിക്കും

സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തി

നാളെ ലോക് ഡൌൺ അവസാനിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നിർണ്ണായക തീരുമാനം

ഇത് സംബന്ധിച്ച് പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങളും മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്

ഗ്രീൻ ഓറഞ്ച് സോണ്ടുകളിൽ നിയന്ത്രിത ഇളവുകൾ നൽകും സാമൂഹിക രാഷ്ട്രീയൂ സാംസ്കാരിക സമ്മേളനങ്ങൾ അനുവദിക്കില്ല

ആവശ്യങ്ങൾക്ക് ഇളവ് അനുവദിക്കും

ഇതിനായി വിവിധ സംസ്ഥാന സർക്കാരുകളും റിയിൽവേയും പ്രത്യേക നോഡൽ ഓഫീസറെ നിയമിക്കും അ്രോഗ്ലക്ഷണങ്ങളി ല്ലാത്തവർക്കു മാത്രമേ യാത്രയ്ക്കുള്ള അനുമതി നൽകൂ

തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ആദ്യ ട്രെയിനിലെ യാത്രക്കാർ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവർക്ക് യാത്രാനുമതി നൽകിയത്

നേരത്തെ പെരുമ്പാവൂരിൽ നിന്ന് കെ

ടി സി ബസുകളിലാണ് ഇവരെ ആലുവ റെയിൽവേസ്റ്റേഷനിൽ എത്തിച്ചത്

അതിഥിതൊഴിലാളികൾക്ക് യാത്രാസൌകര്യം അനുവ ദിച്ച പശ്ചാത്തലത്തിൽ തൊഴിലാളി ക്യാമ്പുകളിലും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തി വരികയാണ്

കേസുകളും മരണവും റിപ്പോർട്ട് ചെയിതിരിക്കുന്നത്

മരണനിരക്കിൽ ്ഇറ്റലിയാണ് അമേരിക്കയ്ക്ക് പിന്നിൽ

ഇരുപത്തിയാറായിരത്തിലേറെ പേർ രോഗ ബാധിതരാണ് മഹാരാഷ്ട്രയിൽ ഇന്നലെ ആയിരത്തിലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

ഒമ്പത് പേർ ഇന്നലെ രോഗമുക്തി നേടി

വരുമാന വർധന ലക്ഷ്യമിട്ട് പൊതു സ്വകാര്യ പങ്കാളിത്തോടെ മൂന്ന് എയർപോർട്ടുകൾ കൂടി ആരംഭിക്കാനുള്ള ടെണ്ടർ നടപടികൾ മൂന്നു മാസത്തിനകം ആരംഭിക്കും

ന്യൂഡൽഹിയിൽ വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളുമായി വീഡിയോ കോൺഫറൻസിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇരുപതോളം സംസ്ഥാനങ്ങൾക്ക് ഇ്തുന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഗോത്രവർഗ ക്ഷേമ മന്ത്രാലയ്ക് അറിയിച്ചു

വ്യോമ നാവിക സേനകളുടെ ഹെലികോപ്റ്ററുകൾ കോവിഡ് ആശുപത്രികളിൽ പൂഷ്പവൃഷ്ടി നടത്തും